കാലങ്ങളെ അപേക്ഷിച്ച് മിക്ച്ച മാറ്റമുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പേടകങ്ങൾ ബഹിർാകാശത്ത് എത്തിക്കുമെന്ന് ഐ എസ് ആർ ഒ

ശ്രമം ലജ്ജാകർമെന്ന് കോൺഗ്രസ്സ് നടത്തിയ ഗവൺമെന്റ് നൽകിയത് വ്യാജ സത്യവാങ്മൂലമെന്ന് ബി ജെ

മാന്ദാമംഗലം സെന്റ് മേരീസ് പള്ളി അടച്ചു ചരിത്രം കുറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം

പിന്നാലെ ഓസ്ട്രേലിയയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയും ഇന്ത്യയ്ക്ക് സ്വന്തം

ഇത് കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്ന് ശ്രീ നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു

അതിനിടെ എത്രപേർ കയറിയെന്നത് കോടതിയെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് വൃക്തമാക്കിയ കോടതി ഗവൺമെന്റ് നൽകിയ പട്ടിക പരിശോധിക്കാൻ തയ്യാറായില്ല

ബിന്ദുവിന്റെയും കനകദുർഗ്ഗയുടേയും ആവശ്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ഉത്തരവ്

ജീവനു ഭീഷണിയുള്ളതിനാൽ മുഴുവൻ സമയ സുരക്ഷ ആവശ്യപ്പെട്ട് ഇരുവരും വ്യാഴാഴ്ചയാണ് ഹർജി നൽകിയത്

പക്ഷേ ഈ സ്ത്രീകളെ മാധ്യമങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് അൻപത് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെന്നാണ് തെളിഞ്ഞത് ആ നിലയക്ക് സുപ്രീംകോടതിയിൽ എന്തിന് തെറ്റായ വിവരം നൽകി എന്നതിന് മുഖ്യമന്ത്രി വിശദീകരണം നൽകണമെന്നും ശ്രീ

എം പ്രവർത്തകൾ രജിസ്ട്രർ ചെയ്യിപ്പിച്ച യുവതികളുടെ വിവരങ്ങളാണ് ഗവൺമെന്റ് സത്യവാങ്മൂലം എന്ന പേരിൽ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചതെന്ന് ബി ജെ

കേരളത്തിലെ വിശ്വാസി സമൂഹത്തോട് തോറ്റതിനുള്ള ജാള്യത മറയ്ക്കാനാണ് ഗവൺമെന്റ് വ്യാജ സത്യവാങ്മൂലം നൽകിയതെന്ന് ശ്രീ ശ്രീധരൻപിള്ള ആരോപിച്ചു

സുരേന്ദ്രൻ യുവതികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കോടതിയിൽ നൽകിയ പട്ടിക കളവാണെന്ന് ബി ജെ

സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുന്ന് പുനപരിശോധന ഹർജികൾ അട്ടിമറിക്കുന്നതിനാണ് ഇങ്ങനെങ്യാരു റിപ്പോർട്ട് നൽകിയതെന്നും ശ്രീ

നെയ്യഭിക്ഷകം ഇന്ന് രാവിലെ അവസാനിച്ചു നാളെ കൂടി കാത്രമേ ഭക്തർക്ക് ക്ഷേത്രത്തൽ പ്രവേശിക്കാനാകൂ മറ്റന്നാൾ പന്തളം രാജകുടുംബത്തിനു മാത്രമാണ് ദർശനം

ഇരുവിഭാഗവും ഒഴിയണമെന്ന കളക്ടറുടെ മുന്നറിയിപ്പിനു പിന്നാലെയാണ് പള്ളി അടച്ചത് പള്ളിക്കകത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഓർത്തഡോക്സ് വിഭാഗം പുറത്തേക്ക് പോയതിനു പിന്നാലെ പള്ളിയുടെ മുൻവശത്തെ വാതിൽ പൂട്ടുകയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ നൂറോളം പേരാണ് പള്ളിയിൽ പ്രതിഷേധിച്ചത് സമാധാനം പുനസ്ഥാപിക്കാതെ ഇനി പള്ളി തുറക്കേണ്ടതില്ലെന്നാണ് തീരുമാനം തൃശ്ശൂർ ജില്ലാ കളക്ടർ ടി

അവകാശ തർക്കം നിലനിൽക്കുന്ന പളളിയിൽ ഇന്നലെ അർധരാത്രി ഉണ്ടായ സംഘർഷത്തിന്റെയും കല്ലേറിന്റെയും സാഹചര്യത്തിലായിരുന്നു ചർച്ചു

വിവിധ വിഷയ്ടങ്ങളെ അധികരിച്ച് നിഷിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകായിരുന്നു മൃന്ത്രി

ഭിന്നശേഷി മേഖലയിൽ കൂടുതൽ മികച്ച പ്രൊഫഷണലുകളെ സൃഷ്ടിക്കേണ്ടതുണ്ട്

ഭിന്നശേഷി മേഖലയിൽ സഹായകരമായ അസിസ്റ്റീവ് ടെക്നോളജിയ്ക്ക് വലിയ മുൻഗണനയാണ് സംസ്ഥാനം നൽകുന്നത് ഇലക്ട്രോണിക്സ് ആന്റ് സ്പേസ് ടെക് നോളജി രംഗത്ത് രാജ്യത്തിന് ത്ന്നെ മാതൃകയാകാൻ നിഷിന് കഴിഞ്ഞിട്ടുണ്ട് അസിസ്റ്റീവ് ടെക്നോളജി രംഗത്തും രാജ്യത്തിന് മാതൃകയാണ് കേരളം നവജാത ശിശുക്കളുടെ കേൾവിശക്തി പരിശോധിച്ച് പരിഹാരം കാണുന്ന പദ്ധതിയിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ മുന്നിലാണെന്നും മന്ത്രി വ്യക്തമാക്കി ഭിന്നശേഷിക്കാർക്കായുള്ള അനുയാത്ര എന്ന സമഗ്രപദ്ധതിയുടെ ഭാഗമായി പ്രസവം നടക്കുന്ന എല്ലാ ആശുപത്രികളിലും അംഗപരിമിതി കണ്ടെത്തുന്നതിനുള്ള സൌകര്യം ഒരുക്കിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പി ജയരാജൻ ആലപ്പാട് ഖനനത്തിനെതിരായ സമരം തുടരുന്നത് ദൌർഭാഗ്യകരമെന്ന് മന്ത്രി ഇ പി ജയരാജൻ ഗവൺമെന്റ ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ് ഖനനം നിർത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും സമരസമിതിയുടെ വിവിധ ആവശ്യങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ച ശേഷവും സമരസമിതി പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും ശ്രീ ജയരാജൻ പറഞ്ഞു

ആലപ്പാട്ട് നിയമസഭാ സമിതിയുടെ കണ്ടെത്ത്ൽ നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കേണ്ടതെന്നും അ്ദ്ദേഹം കൂട്ടിച്ചേർത്തു

മുഖ്യമന്ത്രി ് നേരിട്ട് വിഷയത്തിൽ ഇടപെടണം വിഷയത്തിൽ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ശ്രീ ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

കൂടാതെ വ്യാപാരസ്ഥാപനങ്ങളിൽ പ്താസ്റ്റിക് പതാക് വിൽക്കരുതെന്നും സർക്കുലറിൽ പറയുന്നു

ഇതോടെ മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ രണ്ടെണ്ണം വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി

അർദ്ധ സെഞ്ചുറി ന്നേടിയ മഹേന്ദ്രസിംഗ് ധോണി കേദാർ ജാദവ് എന്നിവരുട്ടെ ്മികച്ച പ്രകടനമാണ്